വെള്ളിയാഴ്ച്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത കെവിൻ വധക്കേസിൽ വിധി ഇന്ന്

ഇതു സംബന്ധിച്ച ബിമൽ ജലാൻ സമിതിയുടെ റിപ്പോർട്ടിന് ആർബിഐ കേന്ദ്ര ബോർഡ് അംഗീകാരം നൽകി ഘട്ടംഘട്ടമായാണ് തുക നൽകുക

ഏഴാമത് കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനം ന്യൂഡൽഹിയിൽ ഇന്ന് തുടങ്ങും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ ത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ എന്നതാണ് ഈ വർഷത്തെ വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ പിവിധ മുൻഗണനാ പദ്ധതികളായ ജനശക്തി അഭിയാൻ ദുരന്ത നിവാരണ ശ്രമങ്ങൾ എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും ചടങ്ങിൽ മികച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾക്ക് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പുര സ്കാരങ്ങൾ നൽകും പൊലീസ് സേനാംഗങ്ങളിലെ ആത്മഹത്യാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള പൊലീസ് അസോ സിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേ ളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊലീസ് സേനാംഗങ്ങൾക്ക് അന്യായ സമ്മർദ്ദങ്ങൾ ഇല്ലാത്ത തൊഴിൽ അന്തരീക്ഷവും നല്ല മാനസികനിലയും ഉറപ്പാക്കാൻ എന്തു ചെയ്യാനാകുമെന്ന് ഗവൺമെന്റ് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്കപ്പ് മർദ്ദനവും അതുമൂലം മരണവും ഉണ്ടാകുന്നത് പൊലീസിന്റെ മറ്റൊരു മുഖം വൃക്തമാക്കുന്നുവെന്നും ഇത് ഗൌരവ മായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ പൊലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു

പദ്ധതിയിൽ വെള്ള പ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തണമെന്ന് തോമ റിന് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചു മുൻകാലങ്ങളിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ദേശീയ തൊഴി ലൂറപ്പ് പദ്ധതി മന്ത്രാലയം പ്രത്യേകമായി ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് രാഹുൽ പറഞ്ഞു ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്നും ഒട്ടേറെ പേർ ഭവ്നരഹിതരായിട്ടുണ്ടെന്നും ആയിരക്കണക്കിനാളുകളുടെ വീടുകൾ ചെളി നിറഞ്ഞ് താമസയോ ഗൃമല്ലാതായെന്നും രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു രാഹുൽ ഗാന്ധി ഇന്നും നാളെയും വയനാട് ജില്ലയിലെ പ്രളയ ബാധിത മേഖല സന്ദർശിക്കും

തുടർന്ന് വാളാ ട് മക്കിയാട് പാണ്ടിക്കടവ് ചാമപ്പാടി ചെറുപുഴ എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും നാളെ രാവിലെ ബാവലിയിലും ചാലിഗദ്ദയിലും എത്തും തുടർന്ന് കൽപ്പറ്റ ബത്തേരി മണ്ഡലങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധി സന്ദർശിക്കും സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്ത മായി വ്യാപക മഴയാണ് എല്ലായിടത്തും ലഭിക്കുന്നത് വെള്ളിയാഴ്ച്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അതിശക്ത മായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വെള്ളിയാഴ്ച്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് ജില്ലയിൽ നാളെയും മറ്റന്നാളും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം വയനാട് ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലും യെല്ലോ അലർട്ട് ആയിരിക്കും

ഇന്നലെ വൈകീട്ട് കോഴിക്കോട് നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ നഗര ത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി മലയോരമേഖലക ളിലും രണ്ട് ദിവസമായി ശക്തമായ മഴ തുടരുകയാണ് മലപ്പുറം കവളപ്പാറയിൽ ഉരുൾപ്പൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നടത്തുന്ന തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും പോത്തുകല്ല് പഞ്ചായത്ത് ഓഡി റ്റോ റി യത്തിൽ ചേർന്ന സർവ്വക ക്ഷി യോ ഗത്തിലാണ് കാണാതായവരുടെ ബന്ധുക്കളുടെ കൂടി അഭിപ്രായമാ രാഞ്ഞ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനി ച്ചത് മേപ്പാടി പുത്തുമലയിൽ അവസാനഘട്ട തെരച്ചിൽ നടത്തിയെ ങ്കിലും ആരെയും കണ്ടെത്താനായില്ല അഞ്ചുപേരെയാണ് കണ്ടെ ത്താനുള്ളത് മുത്താറത്തൊടിയിൽ ഹംസയെ കണ്ടെത്തുന്നതിന് മകന്റെ ആവശ്യ പ്രകാരമാണ് ജുമാ മസ്ജിദ് ഉണ്ടായിരുന്ന ഭാഗത്ത് ഇന്നലെ വീണ്ടും തെരച്ചിൽ നടത്തിയത് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടു കാരും ചേർന്നായിരുന്നു തെരച്ചിൽ പുനരാരംഭിച്ചത് ഇന്നലെ തിര ച്ചിലിൽ ആരെയും കണ്ടെത്താനാകാത്ത സാഹചരൃത്തിൽ കാണാ തായ അഞ്ചുപേർ മരിച്ചതായി കണക്കാക്കി ബന്ധുക്കൾക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നത്തെ തിരുവനന്തപുരം മുംബൈ ലോകമാനൃ തിലക് നേത്രാ വതി എക്സ്പ്രസും എറണാകുളം നിസ്സാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസും ഷൊർണൂർ പോത്തന്നൂർ ഈറോഡ് ജോലാർപേട്ട റെനിഗുണ്ട വഴി തിരിച്ചുവിട്ടതായി റെയിൽവെ അറിയിച്ചു ഇന്നലെ യാത്ര തിരിച്ച ഓഖ എറണാകുളം ലോകമാനൃ തിലക് കൊച്ചുവേളി ഗരീബ്രഥ് എക്സ്പ്രസ് ട്രെയിനുകളും എറണാകുളം പൂനെ പൂർണ്ണ പ്രതിവാര എക്സ്പ്രസ് ട്രെയിനും കോയമ്പത്തൂർ ജബൽപൂർ പ്രതിവാര സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും വഴിതിരിച്ചു വിട്ടിട്ടു ണ്ട് കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാനക്കൊലയായി കോടതി കണ്ടെ ത്തിയ കോട്ടയം കെവിൻ വധക്കേസിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കും

കോട്ടയം നട്ടാശേരി എസ്എച്ച് മൌണ്ട് സ്വദേശി കെവിൻ

ജോസഫിനെ തെന്മല സ്വദേശി നീനുവിനെ കല്ല്യാണം കഴിച്ചതിന്റെ പ്രതികാരമായി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി

എൽഡിഎഫിനു വേണ്ടി കഴിഞ്ഞ രണ്ടു തവണയായി മത്സരിക്കുന്ന എൻ

യുടെ സംസ്ഥാന നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും

മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തെര ഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു

തർക്കങ്ങളില്ലാത്ത ഭൂരേഖകൾ ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരണമെന്ന് ഗവർണർ പി സദാശിവം പറഞ്ഞു സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മികച്ച ഭരണത്തിന് ഇ ഗവേണൻസ് ദ്വിദിന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ നിയമാനുസൃതമായി ജനങ്ങളുടെ ആവശൃങ്ങൾ പരിഗണിക്കു കയും യഥാർഥത്തിൽ അർഹരായവരിലേക്ക് ഗുണഫലങ്ങൾ എത്തി ച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയുമാണ് ഓരോ ഓഫീസിന്റെയും ജോലി യെന്ന് ഗവർണർ പറഞ്ഞു ജന്റർ പാർക്കിന്റെ കോഴിക്കോട്ടെ പ്രധാന കേന്ദ്രത്തിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി കെ

സമൂ ഹത്തിന്റെ എല്ലാ ശ്രേണിയിലുംപെട്ട സ്ത്രീകൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നായി ജന്റർ പാർക്കിനെ മാറ്റുമെന്നും മന്ത്രി തിരുവന ന്തപുരത്ത് അറിയിച്ചു കുട്ടികളെ യാന്ത്രിക ലോകത്തിന്റെ തെറ്റായി ജീവിതചര്യയിൽ നിന്നും സാമൂഹിക ഉത്തരവാദിത്വമുള്ളവരാക്കണമെന്ന് മന്ത്രി എ

മൊയ്തീൻ പറഞ്ഞു തൃശൂർ വടക്കാഞ്ചേരിയിൽ ദൃഷ്ടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി ദൃശ്യമാ ധൃമങ്ങൾ മൊബൈൽ എന്നിവയുടെ അമിതമായ ഉപയോഗം നിയ ന്ത്രിക്കുകയും കുട്ടികളിലെ കാഴ്ച്ചത്തകരാറുകൾ കണ്ടെത്തി അവ രുടെ കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗൃമേഖലയിലെ സമഗ്രവികസനത്തിനായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ ആർദ്രം മിഷൻ രാജ്യത്തിന് മാതൃകയാ ണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലം ചക്കുവര യ്ക്കൽ അഞ്ചാണാംകുഴിയിൽ വെട്ടിക്കവല ബ്ലോക്ക് സഹകരണ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കുട്ടികളുടെയും കൌമാരക്കാരുടെയും ഗർഭിണികളുടെയും മുല യൂട്ടുന്ന അമ്മമാരുടെയും പോഷക നിലവാരം മെച്ചപ്പെടുത്തുന്ന വിവിധ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതിനാണ് പുരസ്കാ രം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു

ഇന്ധനം ലഭി ക്കാത്തതിന്റെ പേരിൽ വിമാനം വൈകുന്ന കാര്യം ആന്റോ ആന്റണി എംപി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ഹർദീപ്സിങ്ങ് പുരിയുടേയും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റേയും ശ്രദ്ധയിൽപ്പെടുത്തി യതിനെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരമായത് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തം തുടരുന്ന സാഹചരൃത്തിൽ അതി ജീവനത്തിന് പ്രകൃതിക്ക് അനുസൃതമായ ജീവിതം ക്രമപ്പെടുത്തണ മെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു കാസർകോട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച തെളിവെടുപ്പി ലാണ് സമിതി ചെയർമാൻ മൂല്ലക്കര രത്നാകരൻ സുസ്ഥിര വികസ നത്തിന്റെ ആവശൃകതയെക്കുറിച്ച് പറഞ്ഞത് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി അംഗവും കോൺഗ്രസ് നേതാവുമാ യി രു ന്ന കോഴിക്കോട് കരു വൻപൊ യിൽ ടി

മുഹമ്മദ് മാസ്റ്റർ നിര്യാതനായി

ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ ഉദ്യോ ഗസ്ഥ സംവിധാനത്തെ ഒപ്പം ചേർത്ത് മികച്ച രീതിയിൽ ആശയവിനി യമം നടത്തി മുന്നോട്ട് പോകാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ കെ

കോഴിക്കോട് ജില്ലാതല ബോധവത്ക്കരണ പരിപാടിയിൽ ആമുഖ പ്രഭാ ഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഓണക്കാലമെത്തിയിട്ടും ഏത്തക്കായുടെ വിലയിടിവ് ഇടുക്കി യിലെ കർഷകർക്ക് തിരിച്ചടിയായി കഴിഞ്ഞ തവണത്തേതു പോലെ ഈ വർഷവും മഴക്കെടുതിയിൽ വാഴകൃഷിക്ക് വൃാപകമായി നാശം നേരിട്ടിരുന്നു ശേഷിച്ചവയ്ക്ക് ഓണക്കാലത്തെങ്കിലും മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ